സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്ര മോദി

സംസ്ഥാനങ്ങൾക്കുള്ള ജി എസ് ടി കുടിശ്ശിക എത്രയുംവേഗ്കും ലഭ്യ്മാക്കുമെന്ന് ധനമന്ത്രി

രോഗവ്യാപനം പിടിച്ചു നിർത്താൻ കഴിഞ്ഞെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ

പുതിയ സാങ്കേതികവിദ്യകൾ വികസിപ്പിക്കാനും പ്രതിരോന മേഖലയിലെ സ്വകാര്യ പങ്കാളിത്തത്തിനും ശ്രമങ്ങൾ നടക്കുന്നുണ്ടെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു

പ്രതിരോധ ഉത്പാദനത്തിൽ വലിയ ശേഷി രാജ്യത്തിനുണ്ടെന്നും ആവശ്യമായ ശ്രദ്ധ ഈ മേഖലയ്ക്ക് നല്കാനായിട്ടില്ലെന്നും ശ്രീ മോദി പറഞ്ഞു

വോയിസ് ജി എസ് ടി കുടിശ്ശിക്രില്ട്യ്മാക്കുന്നതിനുള്ള നടപടിക്രമങ്ങൾ സംബന്ധിച്ചു ജി ടി കൌൺസിലിന്റ അംഗീകാരം ലഭിച്ചതിനുശേഷം എത്രയുംവേഗം തുക സംസ്ഥാനങ്ങൾക്ക് ലഭ്യമാക്കുമെന്ന് ധനമന്ത്രി അറിയിച്ചു

ഇതിലൂടെ സംസ്ഥാനങ്ങൾക്ക് വായ്പയ്ക്കായി ബുദ്ധിമുട്ടേണ്ട സാഹചര്യം ഉണ്ടാവില്ലെന്ന് ശ്രീമതി നിർമ്മലാ സീതാരാമൻ വ്യക്തമാക്കി

നാളെ നിയമസഭാ സമ്മേളനം നടക്കുന്നതിനു മുന്നോടിയായി നടത്തിയ പരിശോധനയിലാണ് ഇവർക്ക് കോവിഡ് സ്ഥിരീകരിച്ചത് കോവിഡ് സ്ഥിരീകരിച്ച എംഎൽഎമാർ ചൊവ്വാഴ്ച ചണ്ഡീഗഡിൽ നടന്ന ആം ആദ്മി പാർട്ടിയുടേയും ശിരോമണി അകാലിദളിന്റെയും യോഗങ്ങളിൽ പങ്കെടുത്തിരുന്നു

അസ്ട്രാസെനെക്കയും സ്ന്റ്യുക്തമായി വികസിപ്പിച്ച കോവിഷീൽഡ് വാക്സിന്റെ മനുഷ്യരിലെ പ്രീക്ഷണം നടത്തുന്ന ഇന്ത്യയിലെ പതിനേഴ് സ്ഥലങ്ങളിൽ ഒന്ന് ചെന്നൈയാണ്

അയൽ സംസ്ഥാനങ്ങളടക്കം രാജ്യത്ത് കോവിഡ് സ്ഥിതി ഗുരുതരമാണ് കേരളത്തിൽ ജനങ്ങളുടെയും സംവിധാനങ്ങളുടെയും പ്രയത്നത്തിന്റെ ഫലമായാണ് സർക്കാർ രോഗത്തെ പിടിച്ചുനിർത്താനാകുന്നതെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു

കഴിഞ്ഞ ദിവസത്തെ ചർച്ചയിൽ വാക്സിനെക്കുറിച്ചുള്ള വ്യിപ്പൂര്ങ്ങൾ കൈമാറിയതായും കേന്ദ്ര ആരോഗ്യസെക്രട്ടറി രാജേഷ് ഭൂഷൺ അറിയിച്ചു

സ്വാശ്രയത്വം നേടുന്നതിനും മാനവകുലത്തെ സേവിക്കുന്നതിനും രാജ്യത്തെ ഓരോ പൌരന്റെയും സംരംഭകത്വ കഴിവുകളും സാങ്കേതിക നൈപുണ്യവും പ്രയോജനപ്പെടുത്തണമെന്നും നമ്മുടെ പ്രാദേശിക വിഭവങ്ങൾ അതിനായി ഉപയോഗപ്പെടുത്തണമെന്നും അദ്ദേഹം പറഞ്ഞു ഗാന്ധിയൻ തത്തചിന്തയിൽ നിന്ന് പ്രേരണ ഉൾക്കൊണ്ട് സാമൂഹ്യ ഉന്നമനത്തിനും ഭൂദാന പ്രസ്ഥാനത്തിനും ആചാര്യ വിനോബ ഭാവെ നൽകിയ സംഭാവനകളെക്കുറിച്ചുള്ള ഒരു വെബിനാറിനെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം

രാജ്യത്തെ വ്യാവസായിക ഉൽ പാദനം ഉത്തേജിപ്പിക്കുകനിക്ഷേപം ആകർഷിക്കുക വൺ ഡിസ്ട്രിക്റ്റ് വൺ പ്രൊഡക്റ്റ് ഒ

പി നയം പ്രോത്സാഹിപ്പിക്കുക ആത്മ ഭാരത് നിർഭർ ലക്ഷ്യമിട്ടുള്ള ദേശീയ പ്രസ്ഥാനത്തെ പ്രോത്സാഹിപ്പിക്കുക തുടങ്ങിയ വിഷയങ്ങൾ യോഗം ചർച്ച ചെയ്തു കൂടുതൽ വിവരങ്ങളുമായി ലക്ഷ്മി ശ്രീ വിജയ

ഐ എസ്

ഇൻഡസ്ട്രിയൽ ഇൻഫർമേഷൻ സിസ്റ്റവും സംസ്ഥാനങ്ങളിലെ ജി ഐ

സംസ്ഥാനങ്ങളിലെ വ്യാവസായിക മേഖലകളുടെയും ക്ലസ്റ്ററുകളുടെയും ജി

അധിഷ്ഠിത ഡാറ്റാബേസാണ് ഐ

ന്യൂസ് ഡെസ്ക് ആകാശവാണി